അംഗീകാരമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു

നടപടി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

യുദ്ധകാലാടിസ്ഥാനത്തിൽ ്പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ

നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ ് വോയ്സ് ലോകത്തെ വൻ സാമ്പത്തിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ ഉല്പാദനം ഇനിയും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണിപ്പോൾ

മാസ്ക് ധരിക്കുക രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നതാണ് കാര്യക്ഷമമായ ആരോഗ്യ മേഖലയിൽ നൂതന സങ്കേതങ്ങൾ മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ ചടങ്ങിൽ സംബന്ധിക്കും

കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രജ്ഞ രീതി പിന്തുടർന്നിരുന്നു

ഇൌ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവികൾക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ഒരേ ദിവസം തന്നെയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

ഓഫീസർ ടിക്കാറാം മീണ കൊവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപരുത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

പക്ഷപാതപരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും നിയമ നടപടിയും ഉണ്ടാകുമെന്നും ശ്രീ

അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര മാർഗ്ഗ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് കർണ്ണാടകയുടെ നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു അവശ്യസാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കർണാടക അറിയിച്ചിട്ടുണ്ട്

ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു

ജെ

യിലൂടെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂവെന്നും ജനറൽ വി

ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ശ്രീ നാരായണസ്വാമി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പദം രാജിവെച്ചത്

ദേശീയ പാതയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചാണ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അപകടം

മരിച്ചവരുടെ കുടുംബത്തെ ശ്രീ നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു

ഇന്നലെ നടന്ന മത്സരത്തിൽ കരുത്തരും നിലവിലെ ഒന്നാം സ്ഥാനക്കാരുമായ എ

പോളിമർ ശാസ്ത്ര സാങ്കേതികവിദൃ മേഖലയിൽ ശാസ്ത്രജ്ഞരും വൃവസായികളും നടത്തുന്ന സുപ്രധാന കണ്ടുപിടിത്തങ്ങൾക്കാണ് പുരസ്ക്കാരം നൽകിവരുന്നത്

എൽ എസ് ആർ എസ് എ എം മിസൈലുകൾ ഡി

ഡി

ഒഡീഷ തീരത്തെ ചന്ദിപ്പൂരിലെ പരീക്ഷണ മേഖലയിലായിരുന്നു ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ പരീക്ഷണം